ലോകരാഷ്ട്രങ്ങൾ സ്ഫോടനത്തെ അപലപിച്ചു ശ്രീല്ലങ്കയ്ക്ക് സാധ്യമായ എല്ലാം സഹായവും ചെയ്യുമീന്ന് ഇന്ത്യ

രാജ്യത്തെ പാവപ്പെട്ടവർ പിന്നാക്കവിഭാഗങ്ങൾ കർഷകർ എന്നിവരുടെ ക്ഷേമത്തിന് എൻ

എ ഗവൺമെന്റ് പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

സ്ഫോടനങ്ങൾ ഉണ്ടായ ഉടൻ പോലീസ് പാഞ്ഞെത്തി ദേവാലയങ്ങളും ഹോട്ടലുകളും അടച്ചു സ്ഫോടനം നടന്ന സ്ഥലങ്ങളിലേക്കും ആശുപത്രികളിലേക്കും കൂട്ടമായി പോകരുതെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി റനിൽ വിക്രമ സിംഗെ അടിയന്തിര യോഗം വിളിച്ചു ചേർത്തു സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഒരു സംഘടനയും ഏറ്റെടുത്തിട്ടില്ല

ക്രൈസ്തവ ദേവാലയങ്ങളിലും പഞ്ചനക്ഷത്രഹോട്ടലുകളിലും ഇന്നുണ്ടായ സ്ഫോടനങ്ങൾ ഞെട്ടിക്കുന്നതാണെന്ന് ബ്രട്ടീഷ് പ്രധാനമന്ത്രി തെരേസാ മേ പറഞ്ഞു

ആക്രമണങ്ങൾ ഭയാനകവും അപലപനീയവുമാണെന്ന് ഡച്ച് പ്രധാനമന്ത്രി മാർക്ക് റുട്ടെ പറഞ്ഞു സ്ഫോടനത്തിൽ മരണമടങ്ങ്ക്ക്ക്വരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിക്കുന്നതായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ രാജ്യൂര്ത് ത്കർക്കുവാനുള്ള പരിശ്രമമാണ് ആക്രമണകാരികൾ നടത്തിയ്ക്തെന്ന് ന്യൂസിലെന്റ് പ്രധാനമന്ത്രി ജസീന്ദാർ ആർഡൺ വൃക്തമാക്കി ക്രിസ്ത്യാനികൾ ഈസ്റ്റർ ആഘോഷിക്കുന്ന വേളയിൽ ഉണ്ടായ സ്ഫോടനം അങ്ങേയറ്റം ദുഖകരമാണെന്ന് ജറുസലേമിലെ കത്തോലിക്കാ ദേവാലയ അധികൃതർ പ്രതികരിച്ചു

ഭീകരവാദത്തെ ചെറുക്കുന്നതിന് ശ്രീലങ്കയോടൊപ്പം റഷ്യ എക്കാലത്തും ഒരു പങ്കാളിയായിരിക്കുമെന്ന് പുടിൻ തന്റെ സന്ദേശത്തിൽ പറഞ്ഞു ഫ്രാൻസിസ് മാർപാപ്പയും ശ്രീലങ്കൻ സ്ഫോടനത്തെ അപലപിച്ചു ആക്രമണത്തിരയായവർക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നതായി മാർപാപ്പ തന്റെ സന്ദേശത്തിൽ പറഞ്ഞു ഭീകരാക്രമണത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അപലപിച്ചു ശ്രീലങ്കയെ സഹായിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു ശ്രീലങ്കയുടെ ദുഖത്തിൽ പങ്കുചേരുന്നതായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാൻ പറഞ്ഞു ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ജർമ്മൻ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ ആസ്ട്രിയൻ ചാൻസലർ സെബാസ്റ്റ്യൻ ക്രൂസ് ടർക്കിഷ് പ്രസിഡന്റ് റിസെപ് തയിവ് എർഡോഗൻ യു

ഇ ഭരണാധികാരി തുടങ്ങിയവർ സ്ഫോടനത്തെ അപലപിക്കുകയും ശ്രീലങ്കയ്ക്ക് പിന്തുണ അറിയിക്കുകയും ചെയ്തു

ശ്രീലങ്കയിലെ ജനങ്ങളോട് ഐക്യദാർഡ്യം പ്രഖ്യാപിക്കുന്ന്തായും പ്രധാനമന്ത്രി പറഞ്ഞു

ഭീകരപ്രവർത്തനത്തെ ചെറുക്കുന്നതിനും സുരക്ഷയ്ക്കും ഇന്ത്യ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് ശ്രീ മോദി ശ്രീലങ്കൻ പ്രധാനമന്ത്രിക്ക് ഉറപ്പു നൽകി ചികിത്സയിൽ കഴിയുന്നവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രധാനമന്ത്രി പ്രത്യാശിച്ചു ദ്വീപ് രാഷ്ട്രത്തിലെ സ്ഥിതിഗതികൾ വിദേശകാര്യമന്ത്രാലയം തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പറഞ്ഞു സ്ഫോടനത്തിനിടെ ശ്രീലങ്കയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യാക്കാരെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കാൻ ഇന്ത്യൻ ഹൈകമ്മീഷണർ ഓഫീസുമായി നിരന്തരം ബന്ധപ്പെട്ടുവരികയാണെന്നും ശ്രീമതി സുഷമ സ്വരാജ് പറഞ്ഞു ശ്രീലങ്കൻ സ്ഫോടനത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അനുശോചനം രേഖപ്പെടുത്തി കോൺഗ്രസ്സ് അദ്ധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും ശ്രീലങ്കൻ സ്ഫോടനത്തെ ശക്തമായി അപലപിച്ചു ഭീകരപ്രവർത്തനങ്ങളുടെ ക്രൂരമുഖമാണ് സ്ഫോടനം തുറന്നു കാട്ടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു

കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രധാന സ്ഥലങ്ങളിലും നിരത്തുകളിലും വൻ പ്രകടനത്തോടെയാണ് കൊട്ടിക്കലാശം നടത്തിയത്

ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ എന്നീ മുന്നണികളെ കൂടാതെ സ്വതന്ത്രസ്ഥാനാർത്ഥികളും വൻ പ്രകടനം കാഴ്ച വച്ചു

ദരിദ്രർ പിന്നോക്കകാർ കർഷകർ എന്നിവരുടെ ക്ഷേമം തന്റെ ഗവൺമെന്റിന്റെ പ്രധാന അജണ്ടയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വടക്കൻ ഗുജറാത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞു രാജസ്ഥാനിലെ ചിറ്റോർഗഡിൽ നടന്ന തെരഞ്ഞെടുപ്പ് യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുത്തു

ത്രിപുരയിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ബൂതൃത്വ് പിടിത്തം നടന്നത് മറച്ചു വച്ചതിന് എട്ട് പോളിംഗ് ഉദ്യോഗസ്ഥരെ പ്പോലീസ് അറസ്റ്റു ചെയ്തു

ഡാർജലിംഗ് മണ്ഡലത്തിൽ നേരത്തേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നു

പൃഥിരാജ് കൃഷ്ണൻ കുമാർ അഗർവാൾ എന്നിവരും എ എ പി സ്ഥാനാർത്ഥികളായി ജനവിധി തേടും ഹരിയാനയിൽ ജന നായക് ജനതാപാർട്ടിയും എ എ പിയും സഖ്യത്തിലാണ് എ എ പി മൂന്നു സീറ്റിലും ജെ ജെ പി ഏഴ് സീറ്റിലും മത്സരിക്കും

ഇന്ന് തന്നെ മറുപടി നൽകാനാണ് നിർദ്ദേശം സിദ്ധു തെരഞ്ഞെടുപ്പിന്റെ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായി പ്രഥമദൃഷ്ട്യാ തന്നെ ബോധ്യപ്പെട്ടതായി കമ്മീഷൻ നൽകിയ നോട്ടീസിൽ പറയുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണവേളയിൽ ജാതിയും രാഷ്ട്രീയവും തമ്മിൽ ബന്ധിപ്പിക്കരുതെന്ന് സുപ്രീംകോടതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നേരത്തെ നിർദ്ദേശിച്ചിരുന്നു

ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട് റിട്ടയർഡ് ലഫ്റ്റനന്റ് ജനറൽ ഡി

റിപ്പോർട്ടിനെക്കുറിച്ച് ചർച്ചയും സംവാദവും നടത്തി പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ കൂട്ടിച്ചേർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

രാജ്യത്തിന്റെ വികസന പ്രക്രിയയിൽ സിവിൽ സർവ്വീസ് ഉദ്യോഗസ്ഥരുടെ കഠിനാദ്ധാനം നിർണ്ണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു

ഉയിർത്തെഴുന്നേൽപ്പ് സ്മരണയിൽ ദേവാലയങ്ങളിൽ പാതിരാ കുർബാന ക്രമീകരിച്ചു

പ്രസിഡന്റ് രാംനാഥ് ക്ട്വിന്ദ് വൈസ് പ്രസിഡന്റ് എം വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ക്രൈസ്തവർക്ക് ഈസ്റ്റർ ആശംസകൾ നേർന്നു